അസുഖമുള്ളവർക്ക് മുൻഗണനയെന്നും മുഖ്യമന്ത്രി

മുഖ്യമന്ത്രി നാളെ സ്വകാര്യ ആശുപത്രികളുടെ യോഗം വിളിച്ചു

ചികിത്സയിൽ കഴിയുന്നത് ഒന്നരലക്ഷത്തിലേറെ പേർ

എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഉജ്ജ്വല ജയം വാർത്തകൾ വിശദമായി രാജ്യത്തെ നിലവിലെ കോവിഡ് സ്ഥിതി അവലോകനം ചെയ്യുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗങ്ങൾ ചേരും രാവിലെ ചേരുന്ന യോഗത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട സ്ഥിതി പ്രധാനമന്ത്രി വിലയിരുത്തും കോവിഡ് വ്യാപനം രൂക്ഷമായ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും ഉച്ചകഴിഞ്ഞ് രാജ്യത്തെ പ്രമുഖ ഓക്സിജൻ നിർമ്മാതാക്കളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതിനാൽ പശ്ചിമ ബംഗാളിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ റദ്ദാക്കിയതായി മോദി ട്വിറ്ററിൽ അറിയിച്ചു ദ്ദേ സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷന് ആശയക്കുഴപ്പം ഒഴിവാക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു രണ്ടോ മൂന്നോ ഘട്ടമായി വാക്സിൻ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അസുഖമുള്ളവർക്ക് മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇക്കാര്യം പഠിച്ച് ഉടൻതന്നെ മാനദണ്ഡമുണ്ടാക്കാൻ വിദഗ്ദ്ധ സമിതിയെ ചുതമലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ് ദേദ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ വാക്സിൻ എടുക്കാൻ കഴിയൂവെന്നും രണ്ടാമത്തെ ഡോസ് എടുക്കാൻ എത്തുന്നവർക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നിലവിൽ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തിയവർക്ക് വാക്സിൻ നൽകാൻ പൊതു ധാരണ ആയിട്ടുണ്ട് വാക്സിൻ ലഭ്യമാക്കാൻ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നതിന് മാത്രമായി കാത്തുനിൽക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി ദ്ദേ സംസ്ഥാനത്ത് കോവിഡ് രണ്ടാം വരവിന്റെ പശ്ചാത്തലത്തിൽ വരുംനാളുകളിൽ സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച സർവ്വകക്ഷി യോഗം വിളിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു

സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ചികിത്സക്ക് വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ഇക്കാര്യം നാളെ ചേരുന്ന സ്വകാര്യ ആശുപത്രി അധികൃതരുടെ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഇതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകതയെന്നും അദ്ദേഹം അറിയിച്ചു ദേദ കൊവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ പൌരന്മാർക്ക് സൌജന്യമായി പ്രതിരോധ വാക്സിൻ ഉറപ്പാക്കേണ്ട ബാധ്യത കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകളുടേതാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തു നൽകി ദേദ സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കാൽലക്ഷം കടന്നു

ആദ്യമായാണ് ഇത്രയധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്

ദേദ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ മലപ്പുറം ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സന്ദർശക വിലക്കേർപ്പെടുത്തി ദേദ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളജിൽ കോവിഡ് ഗൂരുതരമായി ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനായി ഐ

യു ബെഡുകളുടെ എണ്ണം നൂറിലേക്കുയർത്തും വെന്റിലേറ്ററുകളുടെ എണ്ണം വർധിപ്പിക്കുന്നതിന് പ്രവർത്തനങ്ങളും ഊർജ്ജിതമായി പുരോഗമിക്കുകയാണെന്ന് മെഡിക്കൽ കോളജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുധീപ് ആകാശവാണിയോട് പറഞ്ഞു

നാളെ മുതൽ ക്ഷേത്രനടയിൽ വിവാഹങ്ങൾക്ക് അനുമതിയില്ല ബുക്കിംഗ് തുക തിരിച്ചു നൽകും

ദര കൊല്ലം ജില്ലയിൽ ഗവൺമെന്റ് ആശുപത്രികൾക്ക് പുറമെ പത്തോളം സ്വകാര്യ ആശുപത്രികളിലും കോവിഡ് ചികിത്സാ സൌകര്യം ഏർപ്പെടുത്തി

ദേദ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് യു

ഇ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി

ദേദ ഇന്ത്യൻ പാസ്പോർട്ടും എമിഗ്രേഷൻ ക്സിയറൻസുമായി എത്തുന്നവർക്ക് വിമാനമാർഗ്ഗം നേപ്പാൾ വഴി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ഇനി എൻ

നേപ്പാൾ വഴി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ നിർബന്ധമായിരുന്ന എൻ

സി എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞെത്തുന്ന ഇന്ത്യക്കാർക്ക് ഒഴിവാക്കിയതായി നേപ്പാളിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി

സി ഒഴിവാക്കിയിരിക്കുന്നത്

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ചടങ്ങുകൾ മാത്രമായി ഒതുങ്ങിയ തൃശൂർ പൂരം ഇന്ന്

എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഉജ്ജ്വല ജയം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മലയാളിതാരം ദേവ്ദത്ത് പടിക്കലിന്റെ ഐ

വി അബ്ദുൾ വഹാബ് ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ എന്നിവരെ രാജ്യസഭാംഗങ്ങളായി ഇന്ന് പ്രഖ്യാപിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നിന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് സമയം കഴിയുന്നതോടെയാണ് മൂവരെയും തെരഞ്ഞെടുത്തായി പ്രഖ്യാപിക്കുക

നിലവിൽ യാത്രാക്കാരുടെ എണ്ണത്തിൽ വൻ കുറവ് ഉണ്ടായെങ്കിലും വളരെ തിരക്കേറിയ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴുവരെ കൂടുതൽ സർവീസുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ക്രമീകരണങ്ങൾ ദേദ കൊവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വോട്ടെണ്ണൽ ദിനത്തിൽ കർഫ്യൂവിന് സമാനമായ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് ഐ എം എ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു

കക്കാട് ആറിന്റെയും പമ്പാ നദിയുടെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ദേദ കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിൽ കെൽട്രോൺ കടവിൽ ഇന്നലെ വൈകീട്ട് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർഥി മുങ്ങി മരിച്ചു